ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ വാഹനം പൊലീസ് പമ്പയിൽ തട ഞ്ഞു ശബരിമലയിലെ യാത്രാ നിയന്ത്രണങ്ങൾ പൂർണമായി നീക്കി

ഷാനവാസിന്റെ മൃതദേഹം ഇന്ന് രാവിലെ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കും ജമ്മുകശ്മീർ നിയമസഭ പിരിച്ചുവിട്ടു

ശബരിമ ലയുടെ പേരിൽ കാലത്തെ പിന്നോട്ടു കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യ പ്പെട്ടു നാം മുന്നോട്ട് പ്രതിവാര ടെലിവിഷൻ പരിപാടിയിൽ സംസാ രിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശബരിമല പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരി ടേണ്ടി വന്നത് മാധ്യമ പ്രവർത്തകർക്കാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ വിഷയത്തിൽ നല്ല നിലപാട് സ്വീക രിച്ചിരുന്നു എന്നാൽ പിന്നീട് ചില വാർത്തകളിൽ നാടിനെ പിന്നോട്ട് വലിക്കുന്നവർക്ക് ഉത്തേജനം നൽകുന്ന സമീപനം ഉണ്ടായെന്ന് മുഖ്യ മന്ത്രി സൂചിപ്പിച്ചു ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ വാഹനം പ്രതിഷേധക്കാരുടെ വാഹനമെന്ന് കരുതി പൊലീസ് പമ്പയിൽ തടഞ്ഞു പുലർച്ചെ ഒരു മണിയോടെ പമ്പ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപമാണ് മന്ത്രിയുടെ കാർ തടഞ്ഞത് മന്ത്രിയുടെ യാത്ര അരമണിക്കൂറോളം തടസ്സപ്പെട്ടു അബദ്ധം മനസ്സിലാക്കിയ പൊലീസ് മാപ്പ് പറയുകയും എസ്പി ഹരി ശങ്കർ മന്ത്രിക്ക് ക്ഷമാപണം എഴുതി നൽകുകയും ചെയ്തു ഇന്നലെ നിലയ്ക്കലിൽ കേന്ദ്രമന്ത്രിയോട് എസ്പി യതീഷ്ചന്ദ്ര അപമര്യാദയായി പെരുമാറിയെന്ന് ബിജെപി ആരോപിച്ചിരുന്നു യതീ ഷ്ചന്ദ്രയുടെ പെരുമാറ്റം ശരിയായോ എന്ന കാര്യം മാധ്യമങ്ങൾ വില യിരുത്തട്ടെയെന്ന് പൊൻ രാധാകൃഷ്ണൻ സന്നിധാനത്ത് പ്രതികരി ച്ചു സംസ്ഥാനത്തെ ഏതെങ്കിലും മന്ത്രിയോട് എസ്പി ഇത്തരത്തിൽ പ്രതികരിക്കുമോ എന്നും മന്ത്രി ചോദിച്ചു തീർത്ഥാടക തിരക്ക് കുറഞ്ഞതോടെ ശബരിമലയിൽ ഏർപ്പെ ടുത്തിയിരുന്ന യാത്രാ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കി

നിലയ്ക്കലിൽ നിന്നും ദിവസം മുഴുവൻ കെഎസ്ആർടിസി സർവ്വീസ് നടത്തും

ക്ഷേത്ര പരിസരത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനും ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാനും പ്രവർത്തകരെ ശബരിമലയിലേക്ക് അവർ പറഞ്ഞയക്കുകയാണെന്ന് ന്യൂഡൽഹിയിൽ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ സിപിഐഎം ആരോപിച്ചു അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്ത് എത്തുന്നു ഭക്തർക്ക് ഒരു വിധ ബുദ്ധിമുട്ടും ഇല്ലെന്ന് ശബരിമല മേൽശാന്തി വി

വാസുദേ വൻ നമ്പൂതിരി അറിയിച്ചു ക്ഷേത്രത്തിലെ പൂജ അഭിഷേക കാര്യ ങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടെന്നും ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും മേൽശാന്തി സന്നിധാനത്ത് പറഞ്ഞു ശബരിമലയിലെ പൊലീസ്രാജ് അവസാനിപ്പിക്കണമെന്ന് കേരളാ ക്ഷേത്ര സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സന്നിധാനത്ത് ആയിര ക്കണക്കിന് പൊലീസുകാരെ അണിനിരത്തി ഭയാനക സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മലപ്പുറം അങ്ങാടിപ്പുറത്ത് ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗം ആരോപിച്ചു ശരണം വിളിക്കുന്ന വരെ അക്രമികളെയെന്ന പോലെ നേരിടുകയും കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്യുകയാണെന്ന് അവർ ആരോപിച്ചു

ശബരിമല തീർത്ഥാടനകാലം മുൻനിർത്തി ചെന്നൈ തിരുവന ന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് വീക്കിലി എക്സ്പ്രസുകൾക്കും തിരുവനന്തപുരം നിസാമുദ്ദീൻ തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസുകൾക്കും ചെങ്ങന്നൂരിൽ രണ്ട് മിനിറ്റ് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു

ഇന്നും നാളെയും പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് കായംകുളത്തിനും പുനലൂരിനുമിടയിൽ റദ്ദാക്കിയ തായും റെയിൽവെ അറിയിച്ചു ഓച്ചിറ യാർഡിലെ അറ്റകുറ്റപണി കളെ തുടർന്നാണിത്

ഐ ഷാനവാസിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി എറണാകുളം നോർത്തിലെ വസതിയിലും ടൌൺഹാളിലും പൊതുദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധിപേർ അന്ത്യാഞ്ജലിയർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ഇ

ജയരാജൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നു

ഇന്നലെ പുലർച്ചെ രണ്ടിന് ചെന്നൈയിലെ സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു ഷാനവാസിൻെറ അന്ത്യം

ഷാനവാസിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഉപരാഷ്ട്രപതി എം

സംസ്ഥാന വികസനത്തിനും സാമൂഹൃ പുരോഗതിക്കും ശ്രമിച്ച മികച്ച പാർലമെന്റേറിയനായിരുന്നു എം

ഷാനവാസെന്ന് ഇരു നേതാക്കളും അനുസ്മരിച്ചു കാൻസർ രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളജിൽ ഒരുക്കിയ ത്രിതല കാൻസർ സെൻ്റർ മുഖ്യമന്ത്രി പിണറായി വിജ യൻ മറ്റന്നാൾ രാവിലെ ഉദ്ഘാടനം ചെയ്യും

നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സ്വർണ മെഡൽ നേടിയ പി ജി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും നിർമ്മാണം പൂർത്തിയായ ലക്ചർ തിയേറ്റും മുഖ്യമന്ത്രി തുറന്നുകൊടുക്കും ജമ്മു കശ്മീർ നിയമസഭ ഗവർണർ സത്യപാൽ മാലിക് പിരിച്ചുവിട്ടു നാഷണൽ കോൺഫറൻസിന്റേയും കോൺഗ്രസി ന്റേയും പിന്തുണയോടെ പിഡിപി പുതിയ മന്ത്രിസഭാ രൂപീകരണ ത്തിന് അവകാശം ഉന്നയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടത്

ജമ്മുകശ്മീരിൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക യാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന് ബിജെപി അഭിപ്രായപ്പെട്ടു ഭീകര സൌഹൃദ പാർട്ടികൾ അധികാരത്തിൽ എത്തുന്നത് തടയാൻ ഇതു വഴി സാധിക്കുമെന്ന് അവർ വിലയിരുത്തി എന്നാൽ ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് നാഷണൽ കോൺഫറൻസും പിഡിപിയും അറിയിച്ചു

രണ്ടാമിന്നിങ്സ് ബാറ്റിങ് തുടങ്ങിയ ബംഗാളിന് അഞ്ച് റൺസെടുക്കുന്നതിനിടെ ഒരു വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് ആദ്യ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് നൃത്ത ഗുരുവും മോഹിനിയാട്ട കലാകാരിയുമായ ഡോ കനക് റെലേയെ തെരഞ്ഞെടുത്തു മൂന്ന് ലക്ഷം രൂപയും കാനായ് കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശിൽപ്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുര സ്കാരം നടനകലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരമാ ണെന്ന് തിരുവനന്തപുരത്ത് മന്ത്രി എ

നിലമ്പൂരിൽ മാവോവാദികൾ തിരിച്ചടിക്ക് ഒരുങ്ങുമെന്ന രഹസ്യ വിവരത്തിനെ തുടർന്ന് പൊലീസ് ജാഗ്രത ശക്തമാക്കി വനമേഖല യിൽ തണ്ടർ ബോൾട്ടിന്റെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാ ണ് മാവോവാദികൾ വെടിയേറ്റ് മരിച്ച വരയൻമലയിൽ രക്തസാക്ഷി ദിനം സംഘടിപ്പിക്കുമെന്നും പൊലീസുകാരോട് പകരം ചോദിക്കു മെന്നും സൂചിപ്പിക്കുന്ന മാവോവാദികളുടെ രഹസ്യ സർക്കുലർ പൊലീസിന് ലഭിച്ചിരുന്നു തണ്ടർ ബോൾട്ടിന്റെ നേതൃത്വത്തിൽ സായു ധസേന വരയൻ മലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രബുദ്ധ കേരള സൃഷ്ടിയിൽ മലയാള സിനിമക്ക് നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു മനുഷ്യ പുരോഗതിക്ക് അടിത്തറയിട്ട പഴയ കാല ചിത്രങ്ങൾ കാണാൻ പുതുതലമുറ തയാറാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു തിരുവന ന്തപുരത്ത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കിൻഫ്രാ ഫിലിം ആന്റ് വീഡിയോ പാർക്കിൽ നിർമ്മിച്ച ചലച്ചിത്ര ഗവേഷണ കേന്ദ്രവും ആർക്കൈവ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മല യാള സിനിമയുടെ ചരിത്രം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രമാ ണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു പൂട്ടിക്കിടക്കുന്ന ആലപ്പുഴ എക്സൽ ഗ്ലാസ് ഫാക്ടറി കെഎ ഫ്സിയും കെഎസ്ഐഡിസി യും ചേർന്ന് ഏറ്റെടുക്കും ഫാക്ടറി യിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാൻ ഇന്നലെ മന്ത്രി ഡോ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ചേർന്ന യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് പ്രളയത്തിൽ സ്കൂളുകൾക്ക് നഷ്ടപ്പെട്ട ഐടി ഉപകരണങ്ങൾക്ക് പകരം പുതിയവ ഇന്ന് മുതൽ വിതരണം ചെയ്യും

അമൃത് നഗരം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം കോർപ്പറേഷനിൽ ദുരന്ത നിവാരണത്തിന് വിദ്യാർത്ഥികളുടെ സേന തയാറാകുന്നു

മൂന്നുദിവസത്തെ കോഴിക്കോട് റവന്യു ജില്ലാ സ്കൂൾ കലോ ത്സവത്തിന് വടകരയിൽ തുടക്കമായി

ആലപ്പുഴ റവന്യു ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും

രാവിലെ ആറിന് ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് ആറ് വരെ തുടരും അതേസമയം വാഹനങ്ങൾ തടയില്ലെന്ന് നേതാക്കൾ അറിയിച്ചു

തൃക്കാർത്തിക മഹോത്സവത്തോട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ ആന യെഴുന്നള്ളത്ത് നടക്കുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത് പാലക്കാട് മരുതറോഡിൽ നബാർഡിന്റെ ധനസഹായത്തോടെ നവീകരിച്ച നാലു കുളങ്ങൾ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി

അച്യുതാനന്ദൻ നാടിന് സമർപ്പിച്ചു